ഇടക്കാല ബജറ്റ് ചർച്ചയ്ക്ക് ലോക്സഭയിൽ ് കേന്ദ്രമന്ത്രി ഇപ്പോൾ മറുപടി പറയുന്നു

പെട്രോളിയം വിപണി സുതാര്യവും അയവുള്ളതുമായിരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

രാജ്യത്ത ് എല്ലാവർക്കും എൽ

ജി ഗ്യാസ് എത്തിക്കാനുള്ള നീലജാല വിപ്തവം അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഉൌർജ്ജമാണ് രാജ്യത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന ശക്തി വിപണിക്ക് അനുസൃതമായി മാനുഷിക മൂലൃങ്ങൾ കണക്കിലെടുത്തു വേണം എണ്ണ പാചക വാതക മേഖല പ്രവർത്തിക്കേണ്ടത്

ഊർജ്ജോല്പാദന വിതരണ ഉപഭോഗ സംവിധാനങ്ങൾ നിരന്തരം മാറുകയാണ് രാജ്യത്തെ എൽ

ജി

ഉൌർജ്ജ ഉപഭോഗ തലസ്ഥാനമെന്ന പശ്ചിമ രാജ്യങ്ങളുടെ കുത്തക കിഴക്കൻ രാജ്യങ്ങളിലേക്ക് മാറുകയാണെന്നും പ്രധാദ്നുമന്ത്രി പറഞ്ഞു

ജൂലായ് ൽ പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് ശ്രീ

നരേന്ദ്രമോദി ഗവണ്മെന്റ് അധികാരത്തിൽ വന്നതോടെ രാജ്യം വികസനത്തിന്റെ പാതയിലെത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു ബജറ്റിലെ നിർദ്ദേശങ്ങൾക്കെതിരായ പ്രതിപക്ഷ ആരോപണങ്ങൾ ധനമന്ത്രി തള്ളി ബജറ്റിൽ കർഷകർക്ക് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ തുച്ഛമാണെന്ന് അണ്ണാ ഡി

പ്രതിരോധ മേഖലയ്ക്ക് മുൻവർഷത്തേക്കാൾ കുറഞ്ഞ തുകയാണ് അനുവദിച്ചതെന്ന് കോൺഗ്രസ് അംഗം എം

എന്നാൽ എൻ

എ ഗവണ്മെന്റിന്റെ ഭരണത്തിൽ സമ്പദ്ഘടന അതിവേഗം വളരുകയാണെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് സിൻഹ പറഞ്ഞു

ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ട് ടി ഡി

പി എസ്

ഉപാദ്ധ്യക്ഷൻ ഹരിവംശ് ആവർത്തിച്ചഭൃർത്ഥിച്ചിട്ടും ബഹളം ശമിക്കാത്തിനെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി അദ്ദേഹം അറിയിച്ചു നേരത്തെ ഉത്തർപ്രദേശിലുണ്ടായ വ്യാജ മദ്യ ദുരന്തത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി ബി

പി അംഗങ്ങൾ ബഹളം വച്ചെങ്കിലും സഭാ അധ്യക്ഷൻ എം

അതിനിടെ കേന്ദ്രമന്ത്രി ജുവൽ ഓറം പട്ടിക വർഗ്ഗവിഭാഗത്തിനായുള്ള മൂന്നാം ഭരണഘടനാ ഭേദഗതി ബില്ലും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് എൻ

ഇന്ത്യക്കാരുടെ വിവാഹ രജിസ്ട്രേഷൻ ബില്ലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങളും ബഹളമുണ്ടാക്കി ന്യൂസ്ഡസ്ക് ആകാശവാണി

പ്രത്യേകാനുമതി ഹർജി പരമോന്നത കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തതെന്ന് മന്ത്രി പറഞ്ഞു

പദ്ധതി പൂർത്തിയാകുന്നതോടെ കിഴക്കുപടിഞ്ഞാറൻ ഇടനാഴി നേപ്പാൾ അന്താരാഷ്ട്ര അതിർത്തിയുമായി ബന്ധിപ്പിക്കാനാവുമെന്ന് ശ്രീ

ഹാജിപൂർ മുതൽ ത്രിവേണിഘട്ട് വരെയുള്ള ജലപാതാ പദ്ധതി ചരക്കു നീക്കം വേഗത്തിലക്കാൻ പ്രയോജനപ്പെടും

ന്യൂഡൽഹിയിൽ ആഗോള സുസ്ഥിര വികസന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

കേരളത്തെ നിക്ഷേപസൌഹൃദ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന അസന്റ് നിക്ഷേപക സംഗമം കൊച്ചിയിൽ ഉദ്ദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് നിക്ഷേപക യൂണിറ്റുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിന് ഓൺലൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്

എസ് സി

എസ്

ഇതിനുപുറമെയാണ് പുതുതായി ആരംഭിക്കാനിരിക്കുന്ന ഏഴ് കേന്ദ്രങ്ങൾ

കനത്ത് ീസുരക്ഷാ സംവിധാനങ്ങളാണ് ശബരിമലയിലും പമ്പയിലും ഒരുക്കിയിട്ടുള്ളത് കുംഭമാസ പൂജാ ന്ന്ാളുകളിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിന് എല്ലാവരും സഹകരിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി ടി

വിശദാംശങ്ങളുമായി ഉദയൻ കിളിയന്നൂർ

ദേശീയ പോഷകാഹാരമിഷൻ മിഷൻ ഇന്ദ്രധനുഷ് സ്വച്ച് ഭാരത് മിഷൻ എന്നീ പദ്ധതികൾ വഴിയാണ് ഇവ കൃത്യമായി നടപ്പാക്കി വരുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും മികച്ച പോഷണ മൂല്യമുള്ള ഭക്ഷണം ഉറപ്പുവരുത്താൻ ഗവണ്മെന്റ് പ്രതിജ്ഞാബദ്ധമാണ്

ജാപ്പനീസ് എൻസീഫ്രാലൈറ്റിസിനുള്ള മരുന്ന് ഉൾപ്പെടെ അഞ്ച് പുതിയ പ്രതിരോധ ഒരു്ഷ്ധങ്ങൾ ഇതിന്റെ ഭാഗമാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു

ദീൻദയാൽ ഉപാധ്യായയുടെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ബി ജെ

രാഷ്ട്രീയത്തിൽ കള്ളപ്പണം ഒഴിവാക്കി സുതാര്യത കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സമർപ്പൺ ദിവസ് പ്രസ്ഥാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്

ബി ഐ കേസിൽ അന്വേഷണത്തിന് മേൽനോട്ട്് വഹിക്കാൻ സമിതി വേണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി

ന്യൂഡൽഹി പാർലമെന്റ് സ്ട്രീറ്റിലെ ഫക്രുദ്ദീൻ ശവകുടീരത്തിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻസിംഗ് പുഷ്പാജ്ഞലി നടത്തി